കസ്റ്റംസ് തീരുവ ഒഴിവാക്കുമെന്ന് കേന്ദ്രസർക്കാർ

വിമാനങ്ങൾക്ക് യുഎഇ ഏർപ്പെടുത്തിയ വിലക്ക് ഇന്ന് അർധരാത്രി മുതൽ പ്രാബലൃത്തിൽ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന് ഉന്നത തല യോഗത്തിന്റേതാണ് തീരുമാനം വിശദാംശങ്ങളുമായി കിരൺ ശങ്കർ വോയിസ് രാജ്യത്തെ ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കാനായി ഇതുവരെ സ്വീകരിച്ച നടപടികൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഓക്സിജന്റെ ഉത്പാദനം ലഭ്യത എന്നിവ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് മെഡിക്കൽ ഓക്സിജൻ ഓക്സിജൻ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് മേൽ ചുമത്തിയിരുന്ന അടിസ്ഥാന കസ്റ്റംസ് തീരുവ ആരോഗ്യ സെസ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കിയത് ഓക്സിജൻ സംഭരണികൾ നിറയ്ക്കൽ സംവിധാനങ്ങൾ വെന്റിലേറ്ററുകൾ തുടങ്ങിയവയുടെ സുഗമമായ ഇറക്കുമതിക്ക് തീരുമാനം പ്രയോജനം ചെയ്യും കൂടാതെ അടുത്ത മൂന്നു മാസത്തേക്ക് കോവിഡ് വാക്സിനുകൾക്ക്മേലുളള അടിസ്ഥാന ഇറക്കുമതി തീരുവ എടുത്തു കളയാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഓക്സിജൻ മരുന്നുകൾ തുടങ്ങിയവയുടെ വിതരണം ഉറപ്പാക്കാൻ വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു

കോവിഡ് ചികിത്സാവശ്യങ്ങൾക്കായി ഇറക്കുമതി ചെയ്യുന്ന ഉപകരണങ്ങളുടെ ക്സിയറൻസ് നടപടികൾ കാലതാമസമില്ലാതെ നടപ്പാക്കണമെന്ന് അദ്ദേഹം റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ടു

ഓക്സിജൻ വഹിച്ചെത്തുന്ന വാഹനങ്ങൾക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കുന്നതി നൊപ്പം അവയുടെ സുഗമമായ യാത്രയ്ക്ക് വഴി ഒരുക്കാനുമാണ് കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളോടും ക്ട്രിന്ദഭരണപ്രദേശങ്ങളോടും രേഖാമൂലം നിർദ്ദേശിച്ചത് കോവിഡ് പ്ലൂർപ്നം രൂക്ഷമായതിനെത്തു ടർന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷ്ട്രക്ടിഞ്ഞ ദിവസം മെഡിക്കൽ ആവശ്യത്തിനായി വേണ്ടിവരുന്ന ഓക്സിജൻ സംബന്ധിച്ചുള്ളക്ടുരൃങ്ങൾ വിലയിരുത്തിയിരുന്നു

ഓക്സിജൻ വിതരണം സുഗമമാ ക്കാൻ ഇന്ത്യൻ വ്യോമസേനയുടെയും റെയിൽവേയുടെയും സഹാ യവും ലഭ്യമാക്കും

രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന സ്വാമിത്വ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കുത്തിവയ്പ് രാജ്യത്ത് പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിൽ മഹാമാരിക്കെതിരെ നമ്മുടെ പോരാട്ടം ശക്തമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

നവഭാരതത്തിലെ ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി വൃക്തമാക്കി പദ്ധതിയുടെ ഭാഗമായ നാലു ലക്ഷത്തിലേറെ ഗുണഭോക്താക്കൾക്ക് പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്യാനായത് വായ്പ അടക്കമുളള സാമ്പത്തിക ആനുകൂലൃങ്ങൾ ഇവർക്ക് ലഭൃമാക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു

സർക്കാരിന്റെ പരിശ്രമ ഫലമായാണ് ഇത് സാധ്യമായതെന്ന് അദ്ദേഹം പറഞ്ഞു ലോക മലേറിയ ദിനത്തോടനുബന്ധിച്ച് നടന്ന വീഡിയോ കോൺഫറൻസിൽ അധ്യക്ഷം വഹിച്ച് സംസാരിക്കുകയായിരുന്നു ഡോ

കേസുകൾ ഉയർന്നതിനെ തുടർന്ന് ആശുപത്രികൾ ഓക്സിജൻ ദൌർലഭൃം നേരിടുകയാണ്

പതിനാലര കോടിയിലധികംപേർക്കാണ് ലോകത്താകെ ഇതുവരെ കോവിഡ് ബാധിച്ചത്

ഇന്ന് മുതൽ പത്ത് ദിവസത്തേക്കാണ് വില അതേസമയം യുഎഇ യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ക്ക് യാത്രാവിമാനങ്ങൾക്ക് വിലക്കില്ല

അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കും ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കാത്തവർക്ക് എതിരെയും കർശന നടപടി എടുക്കുന്നുണ്ട് നാളെയും നിയന്തണങ്ങൾ തുടരും വിവാഹം മരണം തുടങ്ങിയ ചടങ്ങുകൾക്ക് പോകുന്നവർ മതിയായ രേഖകളും തിരിച്ചറിയൽ കാർഡും കൈയിൽ കരുതേണ്ടതാണ്

കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ മൂവ്വായിരത്തിലേറെ കോവിഡ് കേസുകളാണ് ഇന്ന് സ്ഥിരീകരിച്ചത്

ന്യൂസ് ഡസ്ക് ആകാശവാണി

സ്വകാര്യ ആശുപത്രി മാനേജുമെന്റുകളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിലാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് ചികിത്സയ്ക്ക് അമിത നിരക്ക് ഈടാക്കരുതെന്നും പ്രതിനിധികളോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

അടുത്തവർഷം പൊലിമയിൽ പൂരം നടത്താനാകുമെന്ന പ്രതീക്ഷയിൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ശ്രീമൂലസ്ഥാനത്തെത്തി ഉപചാരം ചൊല്ലിപിരിഞ്ഞു

നിലവിൽ പോയിന്റ് പട്ടികയിൽ കൊ്ൽക്ക്ത്തയ്ക്ക് പിന്നാലെ എട്ടാം സ്ഥാനത്താണ് രാജസ്ഥാൻ